യൂനിവേഴ്സിറ്റി പരീക്ഷകളും മാറ്റി വെച്ചു

പി രാമകൃഷ്ണൻ

കൃഷ്ണൻകുട്ടി

ജയശങ്കർ ള്ള ൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വയനാട്ടിലെയും മലപ്പുറ ത്തെയും ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും രാവിലെ കരി പ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളജിലെത്തും അവിടെ നിന്ന് റോഡ് മാർഗ്ഗം മേപ്പാടിയിലേക്ക് പോകും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്ചാസ ക്യാംപ് നേരിൽ കണ്ട ശേഷം കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ ചേരുന്ന ഉന്നതതല യോഗ ത്തിൽ അദ്ദേഹം പങ്കെടുക്കും യോഗത്തിന് ശേഷം ഹെലികോ പ്റ്ററിൽ മലപ്പുറത്തേക്ക് പോകുന്ന മുഖ്യമന്ത്രി ഭൂദാനം ദുരിതാശ്വാസ ക്യാംപിലെത്തി ദുരന്തബാധിതരെ നേരിൽ കാണുകയും ജനപ്ര തിനിധികളുമായി ചർച്ച നടത്തുകയും ചെയ്യും സംസ്ഥാനത്തെ ഒമ്പത് ജില്ലകളിൽ കലക്ടർമാർ പ്രൊഫഷണൽ കോളജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് അവധി അംഗൻവാടികൾക്കും കേന്ദ്രീയ വിദ്യാലയ്ങൾക്കും മദ്റ സകൾക്കും സി ബി എസ് ഇ ഐ സിഎസ് ഇ സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കും

കാസർകോട് പാലക്കാട് ഇടുക്കി കൊല്ലം തിരുവനന്തപുരം ജില്ല കൾക്ക് അവധി ബാധകമല്ല എന്നാൽ പാലക്കാട് കാസർകോട് ജില്ല കളിൽ ദുരിതാശ്ചാസ കൃാംപുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല വെള്ളിയാഴ്ച വരെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി ആരോഗ്യ സർവകലാശാല ഇന്നും നാളെയും നടത്താനിരുന്ന തിയറി പരീക്ഷകളും മാറ്റി

ജി കേരള സർവകലാശാലകളുടെ ഇന്നത്തെ പരീക്ഷകളും മാറ്റിയിട്ടുണ്ട് എന്നാൽ കണ്ണൂർ സർവകലാശാല ഇന്ന് നടത്താനിരുന്ന പരീക്ഷക ളിൽ മാറ്റം വരുത്തിയിട്ടില്ല പാലക്കാട് ജില്ലയിൽ കാലവർഷത്തെ തുടർന്ന് നിലവിൽ ദുരി താശ്വാസ കൃാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് ജില്ലാ കലക്ടർ ബാലമുരളി അവധി പ്രഖ്യാപിച്ചു

സംസ്ഥാനത്ത് ഒരി ടത്തും ഇന്ന് അതി തീവ്ര മഴയ്ക്ക് സാധൃതയില്ലെന്നാണ് വിലയിരു ത്തൽ എന്നാൽ ആറു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടു ണ്ട് കണ്ണൂർ വയനാട് മലപ്പുറം എറണാകുളം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലാണ് ശക്തമായ മഴ സാധ്യത വിലയിരുത്തുന്നത്

സംസ്ഥാനത്തെ പ്രളയ ദുരിത ബാധിതർക്ക് മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം ഗവൺമെന്റ് ധനസഹായം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ഉരുൾപൊട്ടിയ പ്രദേശങ്ങളും ദുരിതാശ്വാസ കൃാംപുകളും നേരിൽകണ്ട ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ദുരിതബാധിതരെ എങ്ങോട്ടെങ്കിലും തള്ളി വിടുന്ന സാഹചര്യം ഉണ്ടാവില്ലെന്നും സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാഹചര്യം ഒരു മിച്ച് നിന്ന് നേരിടുമെന്ന് മന്ത്രി എ

ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളും മരിച്ചവരുടെ ബന്ധുക്കളുടെ വീടുകളും മന്ത്രി സന്ദർശിച്ചു

ജില്ലയിൽ ശുചീക രണവുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് തല യോഗം ഇന്ന് നടത്തും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് താൽകാലിക താമസ സൌകര്യം ഒരുക്കാനും നടപടി പുരോഗമിക്കുകയാണ്

ഓരോ ക്യാമ്പുകളിലേക്കും നോഡൽ ഓഫ്ടീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്

ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം ജാഗ്രത ശക്തമാക്കി പ്രളയത്തിൽ തകർന്ന വയനാട്ടിലേക്ക് എറ ണാകുളത്തിന്റെ സ്നേഹവുമായി ദുരിതാശ്വാസ വസ്തുക്കളുടെ ആദ്യ ലോഡ് അയച്ചു ദുരിതാശ്ചാസ വസ്തുക്കൾ നിറച്ച മിനി ട്രക്കുകളുടെ യാത്ര ജില്ലാ കലക്ടർ എസ്

പീരുമേട് താലുക്കിലാണ് ഏറ്റവും കൂടുതൽ ക്യാംപുകൾ അഞ്ചെണ്ണം ശക്തമായ മഴയെ തുടർന്ന് മൂന്നാർ ടൌണിലും പരിസരങ്ങളിലും കനത്ത നാശനഷ്ടം ഉണ്ടായി ജില്ലയിലെ ചെക്ക് ഡാമുകളുടെ നിർമ്മാണം നിയന്ത്രണ വിധേയമാക്കുമെന്ന് ജില്ലാ കലക്ടർ അറി യിച്ചു

ഇന്നലെ മഴയ്ക്ക് അൽപം ശമ നമായതോടെ ക്യാംപുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മട ങ്ങി ഇപ്പോൾ രണ്ട് ക്യാംപുകൾ മാത്രമാണ് ജില്ലയിൽ പ്രവർത്തി ക്കുന്നത്

പതിനെട്ട് പാടശേഖരങ്ങളാണ് വെള്ള ത്തിനടിയിലായത്

കൊല്ലം ശൂരനാട് പള്ളിക്കലാർ കരകവിഞ്ഞ് നിരവധി വീടുക ളിൽ വെള്ളം കയറി

വെള്ളം കയറിയ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനാവശ്യമാ യ ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തി ക്കണമെന്ന് മന്ത്രി ഇ പി ജയരാജൻ നിർദേശിച്ചു സ്വന്തം ചെല വിൽ വീട് ശുചീകരിച്ച് വാസയോഗ്യമാക്കാൻ സാധിക്കാത്തവരെ സഹായിക്കാൻ കഴിയണം പകർച്ചവ്യാധികൾ തടയാനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും വേണമെന്ന് കണ്ണുരിക്കു ദുരിതാ ശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു കൃാമ്പുകളിൽ കഴിയുന്നവരുടെ വീടുകൾ ശുചീകരിക്കാൻ അ ടിയന്തിര നടപടിയെടുക്കുന്നതിന് മന്ത്രി എ കെ ബാലൻ ഉദ്യോഗ സ്ഥർക്ക് നിർദേശം നൽകി ഇതിനായി തൊഴിലുറപ്പ് പദ്ധതി സന്ന ദ്ധ സംഘടനകൾ എന്നിവരുടെ സേവനം പ്രയോജനപ്പെടുത്തണ മെന്നും മന്ത്രി നിർദേശിച്ചു

പ്രളയ മേഖലയിൽ ക്യാംപുകളിൽ നിന്ന് മടങ്ങി വീട്ടിലെത്തുന്ന വരുടെ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം വാട്ടർ അതോറിറ്റി സൌജ നൃമായി പരിശോധിക്കുമെന്ന് കെ

കിണർവെള്ളവും മറ്റു സ്രോതസ്സുകളിലെ വെള്ളവും പരിശോധി ക്കും

പൊന്നാനിയിൽ ദുരിതാശ്വാസ ക്യാംപിൽ അതിക്രമിച്ചു കയറി ഫോട്ടോയെടുത്ത ആറു പേർക്കെതിരെ പൊലീസ് കേസെടുത്തു

വി ഹയർസെക്കൻഡറി സ്കൂളിലെ ക്യാംപിലാണ് സംഘം അനു മതിയില്ലാതെ ചിത്രമെടുത്തത് മഴക്കെടുതിയിൽ തകരാറിലായ വൈദ്യുതി ബന്ധം പുനസ്ഥാപി ക്കാൻ കൊല്ലത്തു നിന്ന് കെ

ഇ ബി സംഘം കണ്ണൂരിലേക്ക് പുറപ്പെട്ടു

പ്രളയ ബാധിത സംസ്ഥാനങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തിയ കേന്ദ്ര മന്ത്രി അമിത്ഷാ കേരളത്തെ ഒഴിവാക്കിയത് ബോധപൂർവ്വ മാണെന്ന് തോന്നുന്നതായി സിപിഐഎം പൊളിറ്റ് ബ്യൂറോ കുറ്റ പ്പെടുത്തി

ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ വ്യക്ത മാക്കി ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ്യിയുമായി ഇന്നലെ ബീജിങ്ങിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ജയശങ്കർ ഇക്കാര്യം അറിയിച്ചത്

പിവിസി പൈപ്പുകളിലെ കറുത്തീയത്തിന്റെ അംശം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ കേന്ദ്രത്തിന് നിർദേശം നൽകി

കുടിവെള്ള പ്രൈപ്പുകൾക്കും വൈദ്യുതി വയറിങ് ആവശ്യങ്ങൾക്കും പി

ജലവിതരണ പൈപ്പുകളിലെ കറുത്തീയത്തിന്റെ സാന്നിധ്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് കാണിച്ച് നൽകിയ ഹർജിയിലാണ് ട്രിബ്യൂണൽ നടപടി ഇന്തൃ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമ ത്തെയും അവസാനത്തെയും മത്സരം നാളെ പോർട്ട് ഓഫ് സ്പെയി നിൽ നടക്കും ആദ്യ മത്സരം ഉപേക്ഷിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു വിൻഡീസിന്റെ ഇതിഹാസ താരം ക്രിസ്ഗെയിലിന്റെ വിടവാങ്ങൽ മത്സരം കൂടിയാണ് നാളത്തേത്

ഹോവിൽ ഇന്നലെ ബംഗ്ലാദേശിനെ ആറ് വിക്ക റ്റിന് തോൽപിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത് മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിന്റെ മരണവുമായി ബന്ധ പ്പെട്ട് ശ്രീരാം വെങ്കിട്ടരാമന് ജാമ്യം നൽകിയ കീഴ്ക്കോടതി വിധി ക്കെതിരെ ഗവൺമെന്റ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും